പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക്

രണ്ടാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഇന്ന് ഔപചാരിക തുടക്കമാകും

പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ജോലിയിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പത്ത് ശതമാനം സംവരണം ബിൽ വിഭാവനം ചെയ്യുന്നു

ഡി എം

മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്ക അവസ്ഥയുള്ള പൌരൻമാർക്ക് തുല്യ അവസരം ഉറപ്പാക്കുന്നതാണ് ബില്ലെന്ന് ഇതു സംബന്ധിച്ച ചർച്ചകൾക്ക് മറുപടി പറയവെ സാമൂഹൃനീതി ശാക്തീകരണ മന്ത്രി താവർ ചന്ദ് ഗെഹ്ലോട്ട് പറഞ്ഞു പട്ടികജാതിപട്ടികവർഗ്ഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള നിലവിലുള്ള സംവരണ തത്വങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഭേദഗതി ബില്ലെന്ന് നേരത്തെ ബിൽ അവതരിപ്പിക്കവേ ശ്രീ

സംവരണ ഭേദഗതി ബില്ലിന്റെ അന്തസത്ത തന്റെ പാർട്ടി അംഗീകരിക്കുന്നതായും ബി്ല്ലിനെ പിന്തുണയ്ക്കുന്നതായും ഇതു സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു കോൺഗ്രസ്റ്റ് അംഗം കെ

എല്ലാവർക്കും വികസനം എന്ന ഗവൺമെന്റ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന് ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ച ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി രാജ്യം കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നതിന്റെ സാക്ഷാൽക്കാരമാണിതെന്ന് എൽ ജെ പി അദ്ധ്യക്ഷൻ രാംവിലാസ് പസ്വാൻ പറഞ്ഞു

എം

എല്ലാവിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ ബിൽ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ബില്ലിനെ പിന്തുണച്ച എല്ലാ അംഗങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി മത ജാതി പരിഗണനയില്ലാതെ രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവനും തുല്യ അവസരം ഉറപ്പാക്കുന്നത് ബിൽ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രിപ്പറിഞ്ഞു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ് സ്മൃതി ഇറാനി ഹർഷവർദ്ധൻ ബിജെപി അദ്ധ്യക്ഷൻ അമിത് ഷാ തുടങ്ങിയവരും ബില്ലിനെ സ്വാഗ്ത്രം ചെയ്തു

ഒപ്പം കഴിഞ്ഞ ഒരു വർഷക്കാലം തുടർച്ചയായി ഇന്ത്യയിൽ ഉണ്ടാകണമെന്നും പുതിയ ബിൽ നിർദ്ദേശിക്കുന്നു പടിഞ്ഞാറൻ അതിർത്തി വഴി കടന്ന് രാജസ്ഥാൻ പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയ കുടിയേറ്റക്കാർക്കും ബിൽ ബാധകമാണെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് ബിൽ അവതരിപ്പിക്കവേ വൃക്തമാക്കി

നരേന്ദ്രമോദി നിർവ്വഹിക്കും മലിന ജലം ഒഴുക്കുന്നതിനുള്ള ഭൂഗർഭ സംവിധാനവും സോലാപൂരിലെ മൂന്ന് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും രാജ്യത്തിന് സമർപ്പിക്കും പിന്നീട് ആഗ്രയിലെത്തുന്ന പ്രധാനമന്ത്രി ഗംഗാജൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും നഗരത്തിലെ ശുദ്ധ ജലവിതരണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി

ആഗ്ര സ്മാർട്ട് സിറ്റിയ്ക്കായി ഇന്റർഗ്രേറ്റഡ് കമ്മാന്റ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെയും എസ്പ്

കോതി മീനാ ബസാറിലെ പ്പൊതു പരിപാടിയിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും

രാജ്യസഭ സമ്മേളനം ഇന്നത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു

സംസ്ഥാനത്ത് ഇന്നും പണിമുടക്കനുകൂലികൾ ട്രെയിൻ ഗതാഗതം തടഞ്ഞു ഇന്ന് രാവിലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവെ സ്റ്റേഷനിൽ വേണാട് ശബരി എക്സ്പ്രസുകളാണ് സമരാനുകൂലികൾ തടഞ്ഞത്

ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് ഇന്നലെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസുകൾ ഓടിയില്ല കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു

രാഹുലും സഞ്ജുസ്ഥാംസണുമാണ് ക്രീസിൽ

വൈകിട്ട് ഛത്രപതി ശിവജി സ്റ്റേഡിയത്തിൽ ദീപശിഖ പ്രയാണത്തിൽ കേന്ദ്ര കായിക മന്ത്രി രാജ്യവർദ്ധൻ റാത്തോർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് എന്നിവർ പങ്കെടുക്കും

യൂത്ത് ഒളിമ്പിക്സിൽ ഷൂട്ടിങ് വിഭാഗത്തിലെ സ്വർണ്ണ മെഡൽ ജേതാവ് മനു ഭാക്കർ സൌരഭ് ചൌധരി വെയ്റ്റ് ലിഫ്റ്റർ ജെറേമി ലാൽറിനുങ്ക എന്നിവർ പങ്കെടുക്കും ഝാർഖണ്ഡിൽ നിന്നുള്ള ഫുട്ബോൾ താരം പ്രതിമ കുമാർ മിസോറാമിൽ നിന്നുള്ള ഹോക്കി താരം ലാൽതൽചുങ്കി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള എയർ റൈഫിൽ ഷൂട്ടർ അഭിനവ് ഷാ എന്നിവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കും ആൺകുട്ടികളുടെ ഹോക്കി മത്സരം തിങ്കളാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു

അടുത്ത മൂന്ന് വർഷത്തേക്ക് നിരക്കിന് പ്രാബല്യമുണ്ടാകുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് അറിയിച്ചു

എട്ടാം ധനകാര്യസമിതിയുടെ ശുപാർശപ്രകാരമാണ് നടപടി

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗായ് അദ്ധ്യക്ഷം വഹിക്കുന്ന ബഞ്ചിൽ എസ്

ബോബ്ഡെ എൻ വി രമണ യു

ഉപ്പ് ചന്ദ്രചൂഡ് എന്നിവർ അംഗങ്ങളായിരിക്കും കേസിൽ നാള്ള് മുതൽ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്

ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കിയിട്ടും എന്തു കൊണ്ട് കെട്ടിടം അനുവദിച്ച അനുമതി റദ്ദാക്കിയിട്ടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു ചീഫ് ജസ്റ്റിസ് എ

ഷാ ജസ്റ്റിസ് അഞ്ജനാ മിസ്രാ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇത് സംബന്ധിച്ച് മുൻ മുഖ്യമന്ത്രിമാർക്ക് നോട്ടീസ് അയച്ചു

ഇത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും നോഡൽ ഏജൻസി സ്ഥാപിക്കുമെന്നും ശ്രീ സുരേഷ് പ്രഭു പറഞ്ഞു

ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന ഇറാൻ വിദേശകാര്യ മന്ത്രി മൊഹമ്മദ് ജാവേദ് സ്രീഫ് ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി ചബഹാർ തുറമുഖം പ്രവർത്തനക്ഷമമാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങൾക്ക് വിദൂര ഭാവിയിൽ ഏറെ ഗുണം ചെയ്യുന്നതാണ് തുറമുഖമെന്നും കൂടിക്കാഴ്ചയ്ക്കു ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ

ചബഹാർ മേഖലയിൽ പെട്രോക്കെമിക്കൽ രാസവളം എന്നിവയിൽ നിക്ഷേപം നടത്താൻ ഇന്ത്യ ശ്രമിക്കണമെന്ന് ശ്രീ

ഷിന്നീട് ഇന്ത്യ ഇറാൻ വ്യാപാര സെമിനാറിലും അദ്ദേഹം പ്ങ്കെടുത്തു

കനത്ത മഞ്ഞുവീഴ്ചയാണ് കൂടുതൽ അപകടങ്ങൾക്കും കാരണമായത് നോർവെയിൽ കഴിഞ്ഞ ദിവസം കനത്ത മഞ്ഞ് വീഴ്ചയെ തുടർന്ന് സ്കീയിങിനിടെ മരിച്ച നാല് പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായില്ല ഓസ്ട്രിയയിൽ നൂറ് കണക്കിന് ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് റോഡുകളും മറ്റും മഞ്ഞുമൂടിയ നിലയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്